മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവ്

കമ്പനികൾക്ക് എതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്ന പാപ്പരത്ത നിയമ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം

അഞ്ച് കേസുകളാണ് ഉന്നാവോ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ഇവ അഞ്ചും ഡൽഹിയിലെ സി ബി ഐ

കഴിഞ്ഞ ആഴ്ചയുണ്ടായ വാഹന അപ്പക്ടത്തിന്റെ അന്വേഷണം ഒരാഴ്ചക്കകം പൂർത്തിയ്ടാക്കാനും കോടതി സി ബി

പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും സി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെട്ട ബഞ്ചാണ് ഉത്തരവ് നൽകിയത്

ഇതുമായി ബന്ധപ്പെട്ട് മുൻ ബി ജെ പി നേതാവായ കുൽദീപ് സിങ് സെങ്കാറിനേയും മറ്റ് പത്ത് പേരേയും പ്രതിചേർത്ത് സി ബി ഐ കേസ് എടുത്തിട്ടുണ്ട് സെങ്കാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി

ബന്ധുക്കൾക്കും അഭിഭാഷകനുമൊപ്പം വാഹനയാത്ര നടത്തിയ പെൺകുട്ടി അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലാണ്

ഇതുകൂടാതെ കമ്പനി ഭേദഗതി ബില്ലും രാഷ്ട്രപതി അംഗീകരിച്ചു

ഇന്നാണ് ലോക്സഭ ബിൽ പാസാക്കിയത്

വ്യാവസായിക രംഗത്തെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വൃക്തത നൽകുന്നതാണ് പുതിയ നിയമം

കമ്പനികളുടെ നാശമല്ല നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ചോദൃങ്ങൾക്ക് ഉത്തരമായി ധനകാരൃമന്ത്രി നിർമ്മലാ സീത്രാരാമൻ വൃക്തമാക്കി

ഇതിൻ പ്രകാരം എം ബി ബി എസ് അവസാന വർഷം രാജ്യത്താകെ ഒറ്റ പരീക്ഷയാക്കും ബില്ല് ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു ബില്ലിനെതിരെ രാജ്യത്ത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സമരത്തിലാണ്

ഇതു സംബന്ധിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ്പാകിസ്ഥാൻ നിലപാട് മാറ്റിയത് പാക് നിർദ്ദേശങ്ങൾ ഇന്ത്യ പഠിച്ചു വരികയാണെന്ന് വിദേശകാര്യവക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു

മാലദീപ്മുൻ വൈസ്പ്രസിഡന്റ് അഹമ്മദ് അദീബ് അബ്ദുൾ ഗഫൂർ ഇന്ത്യയിൽ വച്ച് അറസ്റ്റിലായതായുള്ള റിപ്പോർട്ടുകളുടെ നിജസ്ഥിതി പരിശോധിച്ചു വരികയാണെന്നും ശ്രീ

ഭക്ഷൃസൂരക്ഷാ കാർഡുള്ള കുടുംബങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങളിലെ ഏത് റേഷൻ കടയിൽ നിന്നും സബ്സിഡി ഇനത്തിൽ അരിയും ഗോതമ്പും വാങ്ങാം

തെലുങ്കാനയിലെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാനത്തെ ഏതെങ്കിലും ന്യായവില ഷോപ്പിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഇതിനകം ലഭൃമായിട്ടുണ്ടെന്ന് ആകാശവാണിയുടെ ഹൈദരാബാദ് പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

അടുത്തവർഷം ആഗസ്റ്റോടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി വൃാപിപ്പിക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത്

വിനോദസഞ്ചാരികൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാവകുപ്പ് അറിയിച്ചു ഗുജറാത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും ശക്തമായ മഴ ലഭിച്ചു

ഗാന്ധിനഗറിൽ ഉന്നതതലയോഗത്തിന് ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നല്കുന്നതിനു വേണ്ടി രണ്ട് ഐഎഎസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി വിജയ് റൂപാനി വഡോദരയിലേക്ക് നിയോഗിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ തുടർച്ചയായി പെയ്യുന്ന കനത്തമഴ വഡോദരയിലെ മിക്ക ഭാഗങ്ങളിലും പ്പെള്ളപ്പൊക്കത്തിന് കാരണമായതായി ആകാശവാണ് പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

എൽ

സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് നേരത്തെ സുപ്രീംകോടതിയെ സമീപിച്ച വിമത എം എൽ എമാരായ രമേഷ് ജർക്കിഹോളിക്കും മഹേഷ് കുമ്മത്തള്ളിക്കും സ്വതന്ത്രൻ ആർ

മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ആവശൃം ഉന്നയിച്ചത് ജമ്മു കശ്മീരിൽ കൂടുതൽ സൈനൃത്തെ വിനൃസിക്കാനുള്ള നടപടിയിൽ നാഷണൽ കോൺഫെറൻസ് നേതാക്കൾ ആശങ്ക അറിയിച്ചു

വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക്യാണ്ണങ്കിൽ സംസ്ഥാനത്തെ വരൾച്ചയ്ക്ക് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

മൂന്ന് പൊതുമേഖല സ്ഥാപനങ്ങളുടെ പങ്കാളിത്തോടെ ഖനിജ് ബിദേശ് ഇന്ത്യാ ലിമിറ്റഡ് അഥവാ കബിൽ എന്ന പേരിലാണ് കമ്പനി രൂപീകരിച്ചത് നാഷണൽ അലുമിനീയം കമ്പനി ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് മിനറൽ എക്സ്പ്ലൊറേഷൻ കമ്പനി ലിമിറ്റഡ് എന്നീ കമ്പനികൾ ക്ടേന്ദ്രി ഖ്യനി ധാതു വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പുവച്ചു ലിഥിയം കോബാൾട്ട് എന്നിവയുടെ ലഭ്യത കമ്പനി ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി അറിയിച്ചു

ഇതോടെ ടൂർണമെന്റിലെ ഇന്ത്യൻ വനിതാ പ്രാതിനിധ്യം അവസാനിച്ചു